പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന് അവിസ്മരണ വരവേൽപ്പ് നൽകാനായി എല്ലാ് ഒരുക്കങ്ങളും പൂർത്തിയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ അറിയിച്ചു ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ട്രംപിന്റെ സന്ദർശനം സഹായിക്കുമെന്നും പ്രധാനമന്ത്രി ്പറഞ്ഞു ജനാധിപത്യം ബഹുസ്വരത തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള പ്രതിബദ്ധതയെപറ്റിയും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചു ഡോണൾഡ് ട്രംപ് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നതായും അറ്റിയിച്ചു വാഷിങ്ങ്ടണിൽ ഇന്നലെ രാത്രി മാധ്യമങ്ങളുമായി ഈ ശ്രംവദിക്കുകയായിരുന്നു യു

പൊലീസും കരസേനയും സി

എഫും സംയുക്തമായി നടത്തിയ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഒളിഞ്ഞിരുന്ന ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു

പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല

വിവിധ ഏജൻസികൾ നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് അദ്ദേഹം ചർച്ചകൾ നടത്തി

വെങ്കയ്യ നായിഡു പ്രപ്ധാനമന്ത്രി നരേന്ദ്ര മോദി എന്നിവർ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു വോയ്സ് ധൈരൃം ശൌരൃം യുദ്ധതന്ത്രം പുരോഗമന ചിന്ത സ്ത്രീകളോടുള്ള ബഹുമാനം എന്നിവയിൽ ശ്രദ്ധേയനായ വൃക്തിയായിരുന്നു ഛത്രപതി ശിവജി എന്ന് ഉപരാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു ഇന്ത്യൻ ചരിത്രത്തിന്റെ അഭിമാന കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലമെന്നും അദ്ദേഹം പറഞ്ഞു പുത്തൻ തലമുറയ്ക്ക് ഛത്രപതി ശിവജിയുടെ ഗുണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും നല്ല ശ്രദ്ധാഞ്ജലി എന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു ഭാരതമാതാവിന്റെ ഏറ്റവും മികച്ച പുത്രനായ ശിവജിക്കു മുന്നിൽ താൻ പ്രണാമം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു

മികച്ച യോദ്ധാവും രാജാവുമായിരുന്നു ഛത്രപതി ശിവജിയെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു

അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാനാണ് കേന്ദ്രസർക്കാർ ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കാനുള്ള തീയതി ഇന്നത്തെ യോഗം തീരുമാനിച്ചേക്കും

മണ്ണിലെ പോഷക ഘട്ടകുങ്ങൾ രേഖപ്പെടുത്തി കർഷകർക്ക് രു വർഷത്തിലൊരിക്കൽ ക്യ്ക്ർസ് നൽകുന്ന പദ്ധതിയാണിത് ഇത്

മണ്ണിന് ആരോഗ്യമില്ലെങ്കിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഈ ്ദൌത്യത്തിലൂടെ അഞ്ചു വർഷമായി വിളകളുടെ ഉൽപ്പാദനം തുടർച്ചയായി വർദ്ധിച്ചതായി കൃഷി സെക്രട്ടറി സഞ്ജയ് അഗർവാൾ ആകാശവാണിയോട് പറഞ്ഞു

യാത്ര ചെയ്യുന്ന സ്ത്രീകളും കുട്ടികൾകളും ഉൾപ്പെടെയുള്ളവർക്ക് പൊതു ശുചിമുറികളുടെ അഭാവം പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി

രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതിലെ പിഴവ് മാത്രമാണ് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പരിശോധനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു സംസ്ഥാന പോലീസിന്റെ ആയുധ ശേഖരണത്തിൽ നിന്ന് വൻതോതിൽ വെടിക്കോപ്പുകളും ഉണ്ടകളും റൈഫിളുകളും കാണാതായെന്നായിരുന്നു സി എ ജി കണ്ടെത്തൽ

ജയശങ്കർ ഇന്ന് ബ്രസ്സൽസിൽ കൂടിക്കാഴ്ച നടത്തി വോയ്സ് ഭീകരവാദത്തെ ചെറുക്കൽ കാലാവസ്ഥാ വൃതിയാനം സാമ്പത്തിക സഹകരണം മെച്ചപ്പെടുത്തൽ തുടങ്ങി ഇന്ത്യയ്ക്കും യൂറോപ്യൻ യൂണിയനും ഒരുപോലെ പ്രധാനമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടന്നു യൂറോപ്യൻ യൂണിയന്റെ വിദേശനയ കൌൺസിലുമായി ഇന്ത്യയുടെ നയപരമായ മുൻഗണനകൾ ഡോ

ജയശങ്കർ പങ്കുവച്ചതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു സുപ്രധാന വിഷയങ്ങളിൽ പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനാവുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസ്താവനയിൽ പറയുന്നു പ്രതിരോധ രംഗത്തെ സഹകരണം സുരക്ഷ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ കണക്ടിവിറ്റി നിക്ഷേപം വാണിജ്യം തുടങ്ങിയ മേഖലകൾക്കും ചർച്ചയിൽ പ്രത്യേക പരിഗണന നൽകി

ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും മികച്ച വ്യക്തികളെ ആകർഷിക്കുന്നതിനായാണ് പുതിയ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ശേഷി കുറഞ്ഞ കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനും ബ്രിട്ടൻ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നു

റഷ്യയുടെ നികിത വിദിയുഗോവുമായി നടന്ന ആറാം റന്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞതിനെ തുടർന്നാണിത്

വൃവസായ രംഗത്തെ പ്രതിനിധികളുമായി ഇന്നലെ ധനമന്ത്രി ഇത് സംബന്ധിച്ച കൂടിക്കാഴ്ച നടത്തിയിരുന്നു സെക്രട്ടറിമാരുമായുള്ള യോഗത്തിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും ചർച്ച നടത്തുമെന്ന് ധനമന്ത്രി അറിയിച്ചു

ഹൈദരാബാദിൽ ആരംഭിച്ച ബയോ ഏഷ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം